കോവിഡ് മഹാമാരിയുടെ കാലത്ത് രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം അതുല്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യൻ പ്രതിരോധ മന്ത്രിയു മായി ചർച്ച നടത്തീ ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് റഷ്യ നൽകിയ പിന്തുണയ്ക്ക് രാജ്നാഥ് സിംഗിന്റെ പ്രശംസ

അതിർത്തിയിൽ ശാന്തിയും സമാധാനവുമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് കരസേനാ മേധാവിയുടെ ദ്വിദിന ലേ സന്ദർശനം തുടരുന്നു

സുമിത് നഗാൽ പുറത്ത് സെറീന വില്യംസ് മൂന്നാം റൌണ്ടിൽ

ഹെദരാബാദിലെ പോലീസ് അക്കാദമിയിൽ നടക്കുന്ന പ്രൊബേഷനറി ഓഫീസർമാരുടെ ദിക്ഷാന്ത് പരേഡിനെ വീഡിയോ കോൺഫറൻസ് വഴി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹൃദയവും മനസ്സും കൊടുത്ത് ജോലി ചെയ്താൽ അതിന്റെ ഫലം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യോഗയും പ്രാണായാമവും പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ ഏറെ സഹായിക്കുമെന്നും ശ്രീ നരേന്ദ്ര മോദി യുവ പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദേശിച്ചു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു മലാക്കാ കടലിടുക്കിൽ രണ്ടുദിവസത്തിനുശേഷം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത നാവിക് പരിശീലനം ഇന്ദ്ര നടക്കാനിരിക്കുകയാണ് ഇന്ത്യൻ മ്ഫാസ്മുദ്ര മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇരുരാജ്യങ്ങളുടെയും പൊതുവായ താൽപര്യം വിളിച്ചോതുന്നതാണ് ഈ പ്രിശീലനം എന്ന് രാജ്യരക്ഷാ മന്ത്രി പ്രതിരോധ അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കായി റഷ്യ നൽകിയിട്ടുള്ള നിരന്തര പിന്തുണയെ അദ്ദേഹം പ്രശംസിച്ചു

യുഎസ് ഇന്ത്യ തന്ത്രപ്രധാന സഹകരണ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചൈനയുടെ കടന്നുകയറ്റതിനെതിരെ ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്

ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച വിവിധ പ്രതിരോധ കരാറുകളുടെ ഫലങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്നും ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞു

ഇന്നലെ കിഴക്കൻ ലഡാക്കിലെ തന്ത്രപ്രധാന മേഖലകളിൽ സന്ദർശനം നടത്തിയ അദ്ദേഹം കമാൻഡർമാരുമായി ആശയവിനിമയം നടത്തുകയും നിലവിലെ സാഹചര്യങ്ങൾ സമഗ്രമായി വിലയിരുത്തുകയും ചെയ്തു കരസേനാ മേധാവിയുടെ സന്ദർശനം കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ചർച്ചകളിൽ സ്വാധീന ഘടകമാണ് സന്ദർശനം പൂർത്തിയാക്കി ജനറൽ എം എം നരവനെ ഇന്ന് ഡൽഹിയിലേക്ക് മടങ്ങും

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

പരിശോധന ക്രമങ്ങളുടെ ഏകീകരണവും പരിശോധനാ ഫലങ്ങളുടെ സ്വീകാരൃതയും കാറന്റീൻ നടപടിക്രമങ്ങളുടെ ഏകീകരണം ആളുകളുടെ സംബന്ധിച്ച് ചട്ട ക്രമങ്ങളുടെ ഏകീകരണം എന്നിവയാണ് യാത്ര അവ

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലെ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും യോഗം ചർച്ച ചെയ്തു മഹാമാരി കാലത്ത് തങ്ങൾ സ്വന്തമാക്കിയ അനൂഭവങ്ങളും പാഠങ്ങളും മന്ത്രിമാർ യോഗത്തിൽ പങ്കുവെച്ചു

സന്ദർശനത്തിന് ശേഷം ഇന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്നതിനു മുൻപ് സംഘം സംസ്ഥാന ചീഫ് സെക്രട്ടറിയുമായും ദുരന്ത നിവാരണ വകുപ്പുമായും ചർച്ച നടത്തും സംസ്ഥാനത്തിന് നൽകേണ്ട സഹായത്തെ ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് സംഘം റിപ്പോർട്ട് സമർപ്പിക്കും

കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പ്രതിദ്ദിനും പതിനൊന്നു ലക്ഷത്തി എഴുപതിനായിരത്തോളം ടെസ്റ്റുകളിാണ് രാജ്യത്ത് നടത്തിയത് കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് പ്രിശോധനകൾ നടത്താനുള്ള ശേഷിയിൽ വമ്പിച്ച കുതിച്ചുച്ചാട്ടം കൈവരിക്കാൻ ഇന്ത്യക്കായി

അമേരിക്കയിൽ ലക്ഷത്തിലേറെ പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്

കൊവിഡ് ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ ലോകത്ത് മൂന്നാമതാണ് ഇന്ത്യ

എയർ ഇന്ത്യ സ്വകാര്യ വിദ്ദേശ്ര വിമാന സർവീസുകൾ ചാർട്ടേഡ് വിമാനങ്ങൾ നാവിക സേന കപ്പലുകൾ തുടങ്ങിയവയിലൂടെയാണ് ഇവരെ രാജ്യത്ത് എത്തിച്ചത് ദൌത്യത്തിന്റെ ആറാം ഘട്ടത്തിന് ഈ മാസം ഒന്നിന് തുടക്കമായതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചു

യുഎസ് ഇന്ത്യ ഉച്ചകോടിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞ കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ജാവദേക്കർ ഇങ്ങനെ പറഞ്ഞത്

വനിതകളുടെ സിംഗിൾസിൽ അമേരിക്കൻ താരം സെറീന വില്യംസ് മൂന്നാം റൌണ്ടിലേക്ക് കടന്നു

സ്വർണ്ണവിലയിൽ മാറ്റമില്ല

ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുതിൻറെ മരണവുമായി ബന്ധപ്പെട്ട് റെയ്ഡിന്റ് പിന്നാലെയാണ് നടപടി ഷോവികിൻറെ ലാപ്ടോപ്പും എൻസിബി ക്സ്റ്റഡിയിലെടുത്തിട്ടുണ്ട്

ഇതു സംബന്ധിച്ച കരട് വിജ്ഞാപനം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുറപ്പെടുവിച്ചു